വീട്ടിൽ തന്നെ കഴിയാൻ പ്രമുഖരുടെ ആഹ്വാനം

മഹാരാഷ്ട്രയിൽ ഒരാൾ കൂടി മരിച്ചു

വിദഗ്ധരെ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചു

വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യ വിമാനം ന്യൂഡൽഹിയിൽ എത്തി യാത്രക്കാർ ക്വാറന്റൈനിൽ

വ്യാഴാഴ്ച രാജ്യത്തെ അഭിസർബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ജനതാ കർഫ്യൂവിന് ആഹ്വാനം ചെയ്തത് കൂടാതെ ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗൃപ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ പൊലീസ് മാധൃമപ്രവർത്തകർ തുടങ്ങി കോവിഡ് പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു ട്രെയിൻ ഗതാഗതം പൂർണമായും സ്തംഭിച്ചു

ഓട്ടോയും ടാക്സിയും ഉൾപ്പെടെയുള്ളവയും സർവീസ് നടത്തുന്നില്ല

വീട്ടിൽ തന്നെ കഴിയാൻ വിവിധ മേഖലയിലെ പ്രമുഖർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിലേക്ക് വഴിതെളിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കേരള ജനത കർഫ്യൂ നിർദേശം പാലിക്കുകയാണ്

എസ് ആർ ടി

യും മെട്രോറെയിലും ഉൾപ്പെടെ സർവ്വീസ് നടത്തുന്നില്ല സ്വകാര്യബസുകളും ഓട്ടോ ടാക്സി സർവീസുകളുമില്ല സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തുന്നില്ല

എല്ലാവരും വീടുകളിൽ കഴിയുന്നതിനാൽ പരിസര ശുചീകരണം നടത്തണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർഥനയും ജനങ്ങൾ പാലിക്കുന്നുണ്ട്

ഉത്തൂർപ്പദേശിൽ മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധ്യാന്ട്ങൾ പ്രവർത്തിക്കുന്നില്ല പ്രഭാത സവാരി അടക്കമുള്ള ശീലങ്ങൾ മാറ്റിവച്ചാണ് ജനങ്ങൾ കർഫ്യൂവിനോട് സഹകരിക്കുന്നത് ബീഹാറിൽ ഭക്ഷണശാലകളും ബസ് സർവ്വീസുകളും ഇന്ന് പ്രവർത്തിക്കുന്നില്ല

എന്നാൽ ഭക്ഷണശാലകളിൽ നിന്നുള്ള ഹോം ഡെലിവറിക്ക് മുടക്കമില്ല അരുണാചൽ പ്രദേശിലും ജനത കർഫ്യൂ പൂർണ്ണമാണ്

മിക്കവാറും കടകൾ അടച്ചിരിക്കുകയാണ്

പശ്ചിമബംഗാളും പ്രധാനമന്ത്രിയുടെ ജനതാ കർഫ്യൂ ആഹ്വാനം ഏറ്റെടുത്തു മെട്രോ ട്രയിനുകൾ അരമണിക്കൂർ ഇടവിട്ട് മാത്രമാണ് സർവ്വീസ് നടത്തുന്നത് റോഡുകളും കവലകളും വിജനമാണ്

ഇതോടെ യു

വരാനിരിക്കുന്നത് കഠിനമായ ദിന്യുളാണെന്നും ഐകൃത്തോടെ ഇരിക്കാനും സ്പാനിഷ് പ്രധാനമന്ത്രി പ്പെഡ്രോ സാൻഞ്ചസ് ജനങ്ങളോട് ആഹാനം ചെയ്തു

സാധനങ്ങൾ അമിതമായി വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കണം

അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും പൊലീസ് മേധാവിയും അംഗങ്ങളായ സമിതി രൂപീകരിച്ചു

വിദ്യ്ശത്തു നിന്നും വരുന്നവർ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർഥിച്ചു

രാജ്യത്ത് വൈറ്റ്ജി വ്യാപനം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ളൂ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലക്ഷ്യമിട്ടാണ് കമ്മിറ്റി രൂപീക്ക്രിച്ചത്

രാജ്യമെമ്പാടുമുള്ള പരിശോധന സംവിധാനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനാണ് നടപടി ഐ